പൊലീസ് കമ്മീഷണർ സി ബി ഐ ക്ക് മുന്നിൽ ഹാജരാകണമെന്ന് സുപ്രീംകോടതി

പിവാദ വൃവസായി വിജയ് മലൃയെ ഇന്തൃയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ബ്രിട്ടന്റെ നടപടിയെ ഇന്ത്യ സ്വാഗതം ചെയ്തു

ചെന്നൈ ഓപ്പൺ എ ടി പി ചലഞ്ചർ ടൂർണമെന്റിൽ എൻ വിജയ് ്സുന്ദർ പ്രശാന്ത് അർജുൻ ഖാഡെ സുമിത് നഗൽ എന്നിവർ രണ്ടാംഘട്ടത്തിൽ

കമ്മീഷണർ സി ബി ഐ യുടെ അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു എന്നാൽ കമ്മീഷണരെ അറസ്റ്റ് ചെയ്യാനോ ബലപ്രയോഗം നടത്താനോ പാടില്ലെന്നും കോടതി നിർദ്ദേശമുണ്ട്

ഹർജിയിൽ കമ്മീഷണർക്ക് കോടതി നോട്ടീസ് നൽകി

മേഘാലയിലെ ഷില്ലോംഗിൽ വച്ച് വേണം കമ്മീഷണർ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാനെന്നും കോടതി നിർദ്ദേശിച്ചു സൂപ്രീംകോടതി വിധിയോട് പ്രതികരിക്കവെ വിധി ധാർമിക വിജയമെന്നായിരുന്നു മമതയുടെ പ്രതികരണം കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായും അന്വേഷണത്തോട് സഹകരിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി

പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈകേസിൽ നിരവധി തൃണമൂൽ കോൺഗ്രസ്സ് നേതാക്കളെ പൊലീസ് മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അപ്പോഴൊന്നും മുഖ്യമന്ത്രി മമത ബാനർജി ധർണ നടത്തിയിട്ടില്ലെന്നും ശ്രീ രവിശങ്കർ പ്രസാദ് പറഞ്ഞു എന്നാൽ അഴിമതിയെ സംബന്ധിച്ച് പൊലീസ് ഉദ്യോഗസ്ഥർക്ക് വൃക്തമായ അറിവുണ്ടെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

ശാരദ ചിട്ടിഫണ്ട് അഴിമതിക്കേസിൽ കൊൽക്കത്തു ചോദ്യംചെയ്യാനുള്ള സി ബി ഐ നടപടിക്കെതിരെ മമത സംഘടിപ്പിച്ചു ധർണയെക്കുകുറിച്ച് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്തി

പ്രതിപക്ഷ മുൻനിരയിൽ എത്താൻ മമത കാണിച്ച നാടകമാണിതെന്നും അദ്ദേഹം പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിവിധ ബോർഡുകൾ നടത്തുന്ന പരീക്ഷകൾ ആരംഭിക്കുന്നത് കണക്കിലെടുത്താണ് സത്യഗ്രഹം അവസാനിപ്പിക്കുന്നതെന്ന് ശ്രീമതി മമത ബാനർജി പറഞ്ഞു

ഇന്നലെ കോൺഗ്രസ് നേതാവ് ഗുലാംനബി ആസാദ് ടി

പി നേതാവ് എൻ ചന്ദ്രബാബു നായിഡു നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള സി

ഐ നേതാവ് ഡി രാജ ടി

വി പാറ്റ് സംവിധാനവുമായി ഒത്തുനോക്കി ഉറപ്പുവരുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു ആവശ്യാ പരിശോധിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

ബ്രിട്ടീഷ് ആഭ്യന്തര ്സെക്രട്ടറി സജീദ് ജാവിദ് മല്യയെ കൈമാറാനുളള കോടതി ഉത്തരവ് അംഗീകരിച്ചതോടെയാണ് മല്യയെ ഇന്ത്യയിലെത്തിക്കാനുളള കാര്യത്തിൽ അന്തിമതീരുമാനമായത്

സമീപിക്കാനും രണ്ടാഴ്ചയ്ക്കുളളിൽ കോടതിയിൽ അപ്പീൽ നൽകാനും മല്യയ്ക്ക് അനുവാദമുണ്ട്

യിൽ അറസ്റ്റ് ചെയ്തിരുന്നു മല്യയെ തിരികെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഒരു ഘട്ടം കൂടി പൂർത്തിയായിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഈ വിഷയത്തിൽ പ്രതികരിച്ചു

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗ്ലൊഗ്ഗോയി അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബഞ്ചാണ് ശ്ര്ബ്രിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധിയിലെ പുനപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നത്

എൻ വിജയ് സുന്ദർ പ്രശാന്ത് അർജുൻ ഖാഡെ സുമിത് നഗൽ എന്നിവരാണ് രണ്ടാംഘട്ടത്തിലേക്ക് എത്തിയത്

നാളെ ഇന്ത്യയുടെ മുൻനിര താരങ്ങളിലൊരാളായ പ്രജ്നേഷ് ഗുണേശ്വരൻ ജർമ്മനിയുടെ ഡാനിയേൽ അൾട്ടിമെയറുമായി ഏറ്റുമുട്ടും

കുംഭമേളയിലെ രണ്ടാം സ്നാനമായ മൌനി അമാവാസ്യയിൽ വ്യത്യസ്ത അഖാഡകളിലെ സന്യാസിമാർ പങ്കെടുത്തു

ഇന്നലെ ലോക കാൻസർ ദിനത്തോട് അനുബന്ധിച്ച് ട്ടിറ്ററിൽ കുറിച്ച സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാരൃം വൃക്തമാക്കിയത്

കാൻസർ ചികിത്സാ രംഗത്തെ ഗവേഷകരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു

സീമാഞ്ചൽ എക്സ്പ്രസ്സ് ഹാജിപ്പൂരിലെ ബുസൂർഗ് സ്റ്റേഷനിൽ പാളം തെറ്റിയതിനെ തുടർന്നാണ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടത്

ഇതുവഴിപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ യഥാസമയം തന്നെയാണ് നീങ്ങുന്നത്

ദേശീയ ആയുഷ് മിഷൻ ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ആയുഷ് സേവനങ്ങളെ ഉൾപ്പെടുത്തുന്നത് ആയൂർവേദ സിദ്ധ യുനാനി ഹോമിയോപ്പൊതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചാ വിഷയമാകും കേന്ദ്ര ആയുഷ് മന്ത്രി ശ്രീപദ് നായിക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും